പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി

രാജ്യത്ത് കോവിഡ് ചികിത്യയിലുള്ളവരേക്കാൾ മൂന്ന് ലക്ഷത്തി നാലായിരം പ്പേർ രോഗമുക്തി നേടിയതായി കേന്ദ്രസർക്കാർ

കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിൽ

സ്ഥിരീകരിച്ചു

തിരുവനന്തപുരത്ത് ലോക്ഡൌൺ തുടരും

അമേരിക്കയിൽ ഇന്നലെ മാത്രം അറുപതിനായിരത്തിലേറെ പേർക്ക് കോവിഡ്

സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതിയും പ്രതിരോധനടപടികളും സംബന്ധിച്ച് വിശദവിവരങ്ങൾ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയോയോട് വ്യക്തമാക്കി അതേസമയം പ്രളയക്കെടുതിയെ കുറിച്ചും ബാഗ്ജൻ എണ്ണക്കിണർ അഗ്നിബാധയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രിയുമായും ടെലിഫോണിലൂടെ ചർച്ചു നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്രം എല്ലാവിധ സഹായവും നൽകുമെന്നും സർബാനന്ദ സോനോവാളിന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി

ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് കൂടുതൽ വിവരങ്ങളുമായി ്ര ന നജ്യമ

ആന്ധ്രാപ്രദേശിൽ രോഗികളുടെ എണ്ണത്തിൽ വർദ്ധന

ന്യൂസ്ഡസ്ക് ആകാശവാണി

പ്രതിരോധ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതും രോഗബാധ എത്രയും വേഗം തിരിച്ചറിയുന്നതുമാണ് ഇതിന് കാര്രണം

കോവിഡ് പരിശോധന സൌകര്യം വെർദ്ധിപ്പിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

മറ്റ് രാജ്യങ്ങളിലെ മരണനിരക്ക് കണക്കിലെടുത്താൽ ഇന്ത്യയിലേക്ക് കുറവാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഇതെന്നും ആരോഗൃമന്ത്രാലയം അറിയിച്ചു

പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമി അറിയിച്ചു

എൽ

സമ്പർക്കബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്

ഇതിൽ പലരുടെയും രോഗ ഉറവിടം അറിയാത്തത് ആശങ്ക ഉയർത്തുന്നു

ന്യൂയോർക്ക് ലണ്ടൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും

രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാംസ്ഥാനത്താണ് ഇന്ത്യ

വിദേശകാരൃ മന്ത്രി എസ്

അമേരിക്ക ഇന്ത്യ സഹകരണത്തിന്റെ ഭാവി ആഗോളവൽക്കരണം വ്യാപാരം നിക്ഷേപം എന്നിവയെ തുടർന്നുള്ള സാഹചര്യവും എന്നിവയും ഉച്ചകോടി ചർച്ച ചെയ്യും കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷമുള്ള തൊഴിൽ സാധ്യതകളും ഉച്ചകോടി വിലയിരുത്തും

കഴിഞ്ഞ വർഷം സെപ്തംബറിൽ അഞ്ച് കോടിയായിരുന്നു മോദിയുടെ ഫോളോവേഴ്സ്

ലോകത്ത് ടിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ലോക നേതാക്കളിൽ മോദി മൂന്നാം സ്ഥാനത്താണുള്ളത് ഇന്തൃയിൽ ടിറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ആളാ്ട്ണ് പ്രധാനമന്ത്രി മോദി

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിതിഗതികൾ വിലയിരുത്തി

ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് അസം മുഖ്യമന്ത്രി അറിയിച്ചു

ഭക്തർക്ക് ഓൺലൈനീല്യൂടെ പണമടച്ച് വഴിപാട് നടത്താനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട്

പൈസലിനെ ഉടൻ ഇന്തൃക്ക് കൈമാറിയേക്കും സ്വർണക്കാടത്ത് കേസിൽ വ്യാജരേഖ ചമയ്ക്കലടക്കമുള്ള കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ യുഎഇ ഫൈസലിനെതിരെ ചുമത്തിയേക്കും